പരിക്കേറ്റവർക്ക് ചികിൽസയ്ക്കായുള്ള സജ്ജീകരണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് ഡൽഹി പോലീസിന് ഹൈക്കോടതി നിർദ്ദേശം

പ്രതിരോധ മേഖലയിൽ സഹകരണം സാധ്യമാക്കുന്ന അടിസ്ഥാന കൈമാറ്റ സഹകരണ കരാറും എത്രയും വേഗം നടപ്പിലാക്കാൻ ഇരു നേതാക്കളും തീരുമാനിച്ചു

മാനസികാരോഗ്യ മേഖലയിലെ ധാരണാ പത്രങ്ങളിലും ഇരു രാജ്യങ്ങളും ഒപ്പുവച്ചു കൂടുതൽ വിവരങ്ങളുമായുി അഞ്ജന വോയ്സ് വൈദ്യശാസ്ത്ര രംഗത്തെ ഉൽപ്പന്നങ്ങളുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ടും ധാരണാ പത്രം ഒപ്പുവച്ചു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനും അമേരിക്കൻ കമ്പനികളും തമ്മിൽ കരാർ ഒപ്പിട്ടു ഭീകരവാദംപ്രോത്സാഹിപ്പിക്കുന്നത് കുറ്റകരമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഊർജ്ജിതമാക്കാൻ തീരുമാനിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും യു

മയക്കുമരുന്ന് കടത്ത് തടയുന്നതിനുമുള്ള കരാറിനും ധാരണയായതായി അവർ അറിയിച്ചു തുറന്നതും നീതിയുക്തവും സന്തുലിതവുമായ വ്യാപാരത്തിന് ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു നയതന്ത്ര ഊർജ്ജ പങ്കാളിത്തം വർദ്ധിപ്പിക്കുന്നതിനും തീരുമാനിച്ചതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു

മത തീവ്രവാദത്തിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധമാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞു ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നത് പ്രധാന ചർച്ചാവിഷ്ടയമായതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു

അമേരിക്കൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനം പുതുവഴികൾ വെട്ടിത്തുറക്കുന്നതാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു ഉഭയകക്ഷി സഹകരണം കൂടുതൽ ശക്തമാക്കാൻ ട്രംപിന്റെ സന്ദർശനം വഴി സാധ്യമായതായി ട്രംപിന് നന്ദി അറിയിച്ചുള്ള ട്ടിറ്റർ സന്ദേശത്തിൽ പ്രധാനമന്ത്രി കുറിച്ചു ഇന്ത്യ അമേരിക്ക സഹകരണം ഇരു രാജ്യങ്ങൾക്കും ലോകത്തിനും ഗുണകരമാണെന്നും ശ്രീ മോദി പറഞ്ഞു

അമേരിക്കയുമായി കൂടുതൽ സഹകരണം ഉറപ്പുവരുത്തുമെന്ന് രാഷ്ട്രപതി രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ഐ

കഴിഞ്ഞ ദിവസം അർദ്ധരാത്രി ജസ്റ്റിസ് മുരളീധറിന്റെ വസതിയിൽ ചേർന്ന കോടതിയാണ് പോലീസിന് ഉത്തരവ് കൈമാറിയത്

ബംഗ്ലാദേശ് പ്രസിഡന്റ് ജൊയ്നൽ അബേദിന്റെ സെക്രട്ടറിയാണ് ശ്രീ മുഖർജിയെ ഇക്കാര്യം അറിയിച്ചത്

ദിനാചരണത്തോട് അനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രേമോദിയും പ്രതിരോധമന്ത്രി രാജ്നാഥ് സിംഗും സൈനികരെ അഭിനന്ദിച്ചു കൂടുതൽ വിവരങ്ങളുമായി നന്ദന ഹോൾഡ് വോയിസ് ഭീകരവാദത്തിനെതിരായ പോരാട്ടത്തിന് മുൻ സർക്കാരുകളെ അപേക്ഷിച്ച് വൃത്യസ്തമായ സമീപനമാണ് ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നതെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു ഭീകരവാദത്തിനെതിരെ ശക്തമായ സന്ദേശമാണ് ബാലാകോട്ട് ആക്രമണത്തിലൂടെ ഇന്ത്യ നൽകിയത് രാജ്യത്തെ ഭീകരവാദ മുക്തമാക്കുന്നതിന് അതിർത്തി കടന്നുള്ള സൈനികനീക്കങ്ങൾക്കും മോദി സർക്കാർ മടിക്കില്ല

ഈ സംഭവത്തിന് രണ്ട്രൂഴ്ച്ചമുമ്പ് നടന്ന പുൽവാമ ആക്രമണത്തിന് പ്രതികാരമായാണ് ഈ പ്രത്യാക്രമണം നടത്തിയത്

ന്യൂസിലാന്റ് വിദേശകാര്യ മന്ത്രി കൂടിയായ അദ്ദേഹം ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രി എസ് ജയശങ്കറുമായി ഇന്ന് വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും

നാളെ രാഷ്ട്രപതി ഭവനിൽ അദ്ദേഹത്തിന് ഔദ്യോഗിക് സ്പീകരണം നൽകും

കോട്ട ലാൽ സോട്ട് ദേശീയ പാതയിൽ ബുന്ദിക്ക് സമീപമാണ് അപകടം രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു മരണ സംഖൃ ഇനിയും ഉയരുമെന്നാണ് സൂചന നിരവധി പേർക്ക് പരിക്കേറ്റു വിശദവിവരങ്ങൾ ലഭൃമായിട്ടില്ല നിയന്ത്രണം വിട്ട ബസ് നദിയിലേക്ക് വീഴുകയായിരുന്നു

അപകടത്തിനിരയായവർ അടുത്തുള്ള പഞ്ചസാര ഫാക്ടറിയിലെ ജീവനക്കാരായിരുന്നു അനധികൃതമായി നടന്നുവരുന്ന കരിമ്പ് വ്യാപാരം നിരീക്ഷിക്കാൻ പട്രോളിങ് നടത്തവെയാണ് വാഹനാപകടം സംഭവിച്ചതെന്ന് പോലീസ് അറിയിച്ചു പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിൽ ചികിൽസയിലാണ്

നാളെ രാവിലെ പത്ത് മണിക്ക് വീട്ടുവളപ്പിൽ സംസ്കരിക്കും

ശങ്കരന്റെ നിര്യാണത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല തുടങ്ങിയവർ അനുശോചിച്ചു സാധാരണ ജനങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തിയ നേതാവായിരുന്നു ശങ്കരനെന്ന് മുഖ്യമന്ത്രി അനുശോചന സന്ദേശത്തിൽ പറഞ്ഞു

ശങ്കരന്റെ വേർപാട് വ്യക്തിപരമായി തനിക്കും കോൺഗ്രസ് പാർട്ടിക്കും തീരാനഷ്ടമാണെന്നും ചെന്നിത്തല പറഞ്ഞു